കെ ശശീന്ദ്രൻ

പി സംസ്ഥാന പ്രസിഡണ്ടായി കെ സുരേന്ദ്രൻ ചുമത ലയേറ്റു

സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ്

ലിംഗനീതിയില്ലാതെ ലോകത്തിലെ ഒരു രാജ്യത്തിനും സമ്പൂർണ്ണ വികസനം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഡൽഹിയിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന അന്താരാഷ്ട്ര ജുഡീഷ്യൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് സ്ഥാപിക്കുന്നത് കോടതി നടപടിക്രമങ്ങൾ എളുപ്പമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

ലോകമെമ്പാടുമുള്ള നിരവധി അന്താരാഷ്ട നിയമപ്രതിഭകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുമായി വിജയകരമായ സമാധാന ചർച്ചയ്ക്ക് പാക്കി സ്ഥാൻ ഭീകരവാദത്തെ അടിച്ചമർത്തിയേ മതിയാവൂവെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു അതിർത്തി ഭീകരവാദം ഇല്ലാതാ ക്കാൻ ആക്കം കൂട്ടുന്ന നടപടി ഇസ്ലാമാബാദിന്റെ ഭാഗത്തുനി ന്നാണ് ഉണ്ടാകേണ്ടതെന്നാണ് അമേരിക്ക കരുതുന്നത് ഇരുരാ ജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരി ഹരിക്കാനാണ് പ്രസിഡണ്ട് ഡൊണാൾഡ് ട്രംപ് അതിയായി ആഗ്ര ഹിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു സ്ഥലവും വീടും ഇല്ലാത്തവർക്കായി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിട സമുച്ചയത്തിന് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ പഞ്ചായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു ചടങ്ങിൽ മന്ത്രി ഇ

വീടിന്റെ ഓരോ ഭാഗവും പ്രത്യേകം തയ്യാറാക്കി തറയുടെ മുകളിൽ ഉറപ്പിക്കുന്ന രീതിയാണ് പ്രീ ഫാബ് ടെക്നോളജി പുതിയ തരം നിർമ്മാണവസ്തുക്കൾ ഉപയോഗിച്ചും പാരിസ്ഥിതിക സന്തുലനം പാലിച്ചും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത പുനരുപയോഗ ശേഷിയില്ലാത്ത പ്ലാസ്റ്റിക്ക് നിരോധനത്തോട് ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതു വരെയുള്ള അനുഭവം പരിശോധിച്ചു പ്ലാസ്റ്റിക്ക് നിരോധനത്തിൽ ഗവൺമെന്റ് കൂടുതൽ വൃക്തത വരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വൃക്തമാക്കി

അവിനാശി വാഹനാപകടത്തിന്റെ പൂർണ ഉത്തരവാദിത്വം കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർക്കാണെന്ന് മന്ത്രി എ

റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ അടിയന്തരയോഗം ചൊവ്വാഴ്ച ചേരുമെന്നും തമി ഴ്നാട് ഗവൺമെന്റ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയു ണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി അവിനാശി അപകടത്തെപ്പറ്റി മോട്ടോർവാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷ്ണർക്ക് ഇന്ന് കൈമാറും പാലക്കാട് എൻഫോഴ്സ്മെന്റ് ആർ

ഒ പി ശിവകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് വൈകിട്ടാണ് കൈമാറുക കരട് നൈപുണ്യ നയവും കരിയർ നയവും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി

സംസ്ഥാന നൈപുണ്യോത്സവം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ദേശീയ നൈപുണ്യോത്സവത്തിന് ആതിഥ്യമരുളാൻ കേരളം സന്നദ്ധത അറിയിച്ചതായി മന്ത്രി വ്യക്ത മാക്കി മേളയോട് അനുബന്ധിച്ച് സാങ്കേതിക പ്രദർശനം വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറം കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടിട്ടുണ്ട് കൊട്ടാരക്കര സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് മന്ത്രി പി തിലോത്തമൻ ഉത്തരവിട്ടു ഗുരുതര ക്രമക്കേടാണ് നടന്നതെന്നും അസാധാരണമായ ഈ സംഭവത്തിൽ സമഗ്ര മായ അനേ ഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തുമെന്നും മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു

രാവിലെ പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിലായിരുന്നു സ്ഥാനാരോഹണം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവെ സ്റ്റേഷനിലെത്തിയ സുരേന്ദ്രനെ പ്രവർത്ത കർ സ്വീകരിച്ച് തുറന്ന വാഹനത്തിലാണ് മാരാർജി ഭവനിലെത്തി ച്ചത് മുൻ പ്രസിഡണ്ടായിരുന്ന പി എസ് ശ്രീധരൻപിള്ളയെ മിസോറാം ഗവർണറായി നിയമിച്ചതിനെ തുടർന്നാണ് പാർട്ടി പുതിയ സംസ്ഥാന പ്രസിഡണ്ടിനെ തീരുമാനിച്ചത് കോഴിക്കോട് ഉള്ള്യേരി സ്വദേശിയായ കെ സുരേന്ദ്രൻ എ

പി യിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത് ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ രണ്ട് ലഷ്കർ ഇ ത്വയ്ബ ഭീകരരെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു ദക്ഷിണ കശ്മീരിലെ ബിജ്ഭേരയിൽ ഇന്നലെ രാത്രി പൊലീസും സി

ഭീകരരിൽ നിന്ന് വെടിക്കോ പ്പുകളും ആയുധങ്ങളും കണ്ടെടുത്തു അടുത്ത മാസം എട്ടിന് ആചരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ കീഴിലെ വിവിധ മാധ്യമ വിഭാഗങ്ങൾ മന്ത്രാലയത്തിന് സംയുക്തമായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും ഹൈദരാബാദിൽ സമാപിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ദക്ഷിണ മേഖലാ സമ്മേളനം ഇത് സംബന്ധിച്ച കരട് പദ്ധതിക്ക് അന്തിമ രൂപം നൽകി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ പ്രചാരണ പരിപാടി തയ്യാറാക്കുമെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ ജോയിന്റ് സെക്രട്ടറി വിക്രം സഹായി ന്യൂഡൽഹിയിൽ അറിയിച്ചു സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ച ശേഷം പത്രങ്ങളുടെയും പ്രസിദ്ധീകരണ ങ്ങളടെയും രജിസ്ട്രേഷൻ നിയമ ഭേദഗതിക്ക് അന്തിമ രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ഭരണ സർവീസിന്റെ ആദ്യ ബാച്ച് പ്രാഥമിക പരീക്ഷക്ക് തുടക്കമായി

കേരള ഭരണ സർവീസ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ശേഷം നടക്കുന്ന ആദ്യ പരീക്ഷയാണ് പുരോഗമിക്കുന്നത്

പരീക്ഷാ ഹാളുകൾക്ക് സമീപം അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഉദ്യോഗാർഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് തിരിച്ചറിയൽ രേഖ പേന എന്നിവ മാത്രമേ ഹാളിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ മൊബൈൽ വാച്ച് പഴ്സ് എന്നിവക്ക് നിരോധനമേർപ്പെടു ത്തിയിട്ടുണ്ട് രാവിലത്തെ പരീക്ഷ എഴുതാത്തവരെ ഉച്ചയ്ക്കു പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല ഉദ്യോഗാർഥികൾക്ക് പരീക്ഷ കേന്ദ്രങ്ങളിൽ എത്താൻ കെഎസ്ആർടിസി സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി സ്വർണവില വീണ്ടും കുതിച്ചുയരുന്നു

തുടർച്ചയായ അഞ്ചാംദിവസമാണ് സ്വർണവില വർധി ക്കുന്നത് വെല്ലിംഗ്ടണിൽ ഇന്ത്യക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ന്യൂസിലാൻഡ് ഭേദപ്പെട്ട നിലയിൽ

കുട്ടനാട് സീറ്റ് കേരളാ കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കേരള കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും എല്ലാവ രെയും ഒരുമിച്ച് കൊണ്ട് പോകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ വൃക്തമാക്കി വിഷയം അടുത്ത യുഡിഎഫ് യോഗം ചർച്ച ചെയ്യുമെന്നും ഉമ്മൻ ചാണ്ടി അറിയിച്ചു കോൺഗ്രസ് നേതാവും എം

തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധ പ്പെട്ട കേസിൽ അന്വേഷണം നേരിടുന്നതിനാലാണ് വിദേശത്ത് പോകാൻ പ്രത്യേക അനുമതി വേണ്ടിവന്നത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ജാമ്യ ഹർജിയിൽ വാദം ഇന്ന് തുടങ്ങും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം ആലുവ മണപ്പു റത്ത് ബലിതർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക്

രണ്ടാ യിരത്തിലധികം പൊലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ക്ലിയറൻസ് കാലതാ മസം ഒഴിവാക്കാൻ കൂടുതൽ ജീവനക്കാരെയും പരിശോധനാ ഉപ കരണങ്ങളും സജ്ജമാക്കണമെന്ന് എം കെ രാഘവൻ എം

ഈ ആവശ്യമുന്നയിച്ച് കസ്റ്റംസ് ബോർഡിനും എയർപോർട്ട് അതോറിറ്റിക്കും അദ്ദേഹം കത്തയച്ചു തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വെള്ളയിൽ മുഹമ്മദ് റാഫി റോഡ് നവീകരണ പ്രവൃത്തി മറ്റന്നാൾ എ പ്രദീപ് കുമാർ എം

എ ഉദ്ഘാടനം ചെയ്യും

കൊച്ചി കളമശ്ശേരി പൊലീസ് സ്റ്റേഷന് സമീപം യാർഡിലുണ്ടായ തീപിടുത്തിൽ നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു വിവിധ കേസുകളിലായി സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങൾക്കാണ് രാവിലെ തീപിടിച്ചത്

പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണ ത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു